സന്ദർശനത്തിനായി ഇന്ന് ബംഗ്ലാദേശിൽ

ഊർജ്ജിതം സീറ്റ് വിഭജനം അന്തിമ ഘട്ടത്തിലേക്ക്

മത്സരം ഇന്ന്

ബംഗ്ലാദേശ് വിദേശകാരൃമന്ത്രി എ കെ അബ്ദുൾ മൊമെനുമായും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേയ്ഖ് ഹസീനയുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാക്കാനായി കഴിഞ്ഞ വർഷം ഡിസംബറിൽ നടന്ന പ്രധാനമന്ത്രിതല ചർച്ചകളുടെ തുടർച്ചയായാണ് ഇന്ന് നടക്കുന്ന വിദേശമന്ത്രിമാരുടെ കൂടിക്കാഴ്ച്ച

രീജ്യത്തെ ആശുപത്രികളിൽ കോവിഡ് വാക ്സിനേഷന് പ്രത്യേക സമയ്പരിധി കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയതോടെ വാക്സിനേഷൻ നടപടികൾ ത്വരിതഗതിയിലായി ജനങ്ങൾക്ക് വാക്സിൻ നൽകാൻ ആശുപത്രികൾ ഒരു നിശ്ചിത സമയപരിധി പാലിക്കേണ്ടതില്ലെന്നും സമയക്രമം സംബന്ധിച്ച് ആശുപത്രികൾക്ക് തീരുമാനിക്കാമെന്നും ഇന്നലെ ക്രേന്ദ ആരോഗൃ മന്ത്രി ഹർഷവർധൻ വൃക്തമാക്കിയിരുന്നു രാജ്യത്ത് രണ്ടാം ഘട്ട കോവിഡ് വാക്സിൻ കുത്തിവെപ്പ് ആരംഭിച്ച സാഹചരൃത്തിൽ നടപടികൾ വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷണിന്റെ നേതൃത്വത്തിൽ ഉന്നത തലയോഗം ചേർന്നിരുന്നു കൊവിഡ് വാക്സിന് രാജ്യത്ത് ലഭൃതക്കുറവില്ലെന്നും അതുകൊണ്ടു തന്നെ സംസ്ഥാനങ്ങൾ കൊവിഡ് വാക്സിനുകൾ സംഭരിക്കേണ്ടതില്ലെന്നും ആരോഗൃ സെക്രട്ടറി വൃക്തമാക്കി

ഇന്നലെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും കോവിഡ് വാക് സിൻ സ്വീകരിച്ചു

ഒരു കോടിയിലേറെപ്പേർ ഇതിനകം രോഗമുക്തി നേടി കഴിഞ്ഞു

ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചുമായി സഹകരിച്ച് ഭാരത് ബയോടെക്കാണ് കോവ്വാക്സിൻ വികസിപ്പിച്ചത്

അഫ്ഗാനിസ്ഥാൻ അർമേനിയ ഇറാൻ ഖസക്കിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ പരിപാടിയിൽ പങ്കെടുക്കും വിദേശകാര്യമന്ത്രി എസ്

ഐക്യരാഷ്ട്ര രക്ഷാ സമിതിയുടെ യോഗത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ പ്രതിനിധികൾ ഇരു വിഭാഗവും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ ഇന്ത്യ നിരന്തരം പരിശ്രമിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ദക്ഷിണ സുഡാനിലെ ജനങ്ങളുമായി ഇന്ത്യയ്ക്ക് ദീർഘകാലത്തെ ബന്ധമുണ്ടെന്ന് ഇന്ത്യയുടെ യു

പുൽവാമ ജില്ലയിലെ അവന്തിപ്പോര മേഖലയുടെ ഭാഗമായ പസ്തൂണായിൽ നടത്തിയ തെരച്ചിലിനിടെയാണ് സംയുക്തസംഘം ഭീകര സംഘടനയായ ഹിസ്ബുൾ മുജാഹിദീന്റെ താവളം തകർത്തത്

ഇന്നും നാളെയുമായി സിപിഎമ്മിന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ നടക്കും

പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഡൽഹിയിൽ ഇന്ന് ചേരും സീറ്റ് വിഭജനം വേഗം പൂർത്തിയാക്കി ഈ മാസം പത്തിനകം സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ് സംസ്ഥാനത്ത് മുന്നണിക്കൾ ബിജെപി സംസ്ഥാന അദ്ധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വിജയ് യ്ട്രാത്രിയുടെ സമാപനത്തിന് ശേഷം പത്തിനകം സീറ്റ് വിഭജനം ്ഷൂർത്തിയാക്കാൻ കഴിയുന്ന വിധത്തിലാണ് ബിജെപിയുടെ ഉഭയ്കക്ഷി ചർച്ചകളും പുരോഗമിക്കുന്നത്

തുടർച്ചയായി കിഫ്ബി ഉദ്യോഗസ്ഥരെ ഇ ഡി വിളിച്ചുവരുത്തുകയാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മിഷണർ സുനിൽ അറോറക്ക് എഴുതിയ കത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി മാതൃകാ പെരുമാറ്റച്ചട്ടം കൃത്യമായി നിലനിർത്തുന്നതിനും സംസ്ഥാനത്ത് സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിനും ഏജൻസികൾ നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ടത് തികച്ചും അനിവാര്യമാണെന്നും കത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി

എസ് ഐ

നാലാം ടെസ്റ്റിൽ ജയമോ സമനിലയോ ഉറപ്പാക്കിയാൽ മാത്രമേ ഇന്ത്യയ്ക്ക് ലോക ടെസ്റ്റ് ചാമ്പൃൻഷിപ്പ് ഫൈനലിൽ ഇടം നേടാനാകൂ

അതേസമയം ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് ടീമായ സ്ട്രിതിക് സായ് രാജ് ചിരാഗ് ഷെട്ടി സഖ്യം സ്വിസ് ഓപ്പണിളന്റെ ആദ്യ റൌണ്ടിൽ നിന്നും പുറത്തായി മത്സരത്തിൽ സ്കോട്ടിഷ് ജോഡികളായ ക്രിസ്ട്ടോഫർ ഗ്രിംലി മാത്യു ഗ്രിംലി സഖ്യത്തോട് തോറ്റാണ് ഇന്ത്യൻ താരങ്ങൾ പുറത്തായത്

ഏഴാം തീയതി തൃശൂരിൽ എത്തുന്ന കമ്മീഷണർ എട്ടാം തീയതി എറണാകുളത്ത് ജില്ലാ വരണാധികാരികൾ പോലീസ് മേധാവികൾ എന്നിവരുമായി ചർച്ച നടത്തും അടുത്ത ദിവസം കോട്ടയം എറണാകുളം ജില്ലകളിലെ വിവിധ ഇടങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തും

നാട് നന്നാകാൻ യു ഡി

കേരളത്തിൽ എല്ലാ വിഭാഗം ജനിങ്ങളും ആഗ്രഹിക്കുന്ന മാറ്റമാണ് യുഡിഎഫിന്റെയും ലക്ഷ്യിക്കുന്ന് പ്രചാരണ വാചകം പുറത്തിറക്കിക്കൊണ്ട് പ്രതിപക്ഷു നേത്താവ് രമേശ് ചെന്നിത്തല പറഞ്ഞു

സി സി അധ്യക്ഷൻ മുല്ല്പ്പള്ളി രാമചന്ദ്രൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തുടങ്ങിയവർ ച്ചടങ്ങിൽ സംബന്ധിച്ചു